കേരളം മറ്റെന്നാൾ പോളിംഗ് ബൂത്തിലേയ്ക്ക്

വോട്ടെടുപ്പിന് കന്ത്ത് സുരക്ഷ ചൊവ്വാഴ്ച വൈകു ന്നേരം വരെ മദ്ദ്യ്നിരോധനം ഏർപ്പെടുത്തി

ഉയിർപ്പിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു

കേന്ദ്രമന്ത്രി നിർമല സീതാരാമൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധി എ കെ ആന്റണി തുടങ്ങിയവരും ഇന്ന് പ്രചാരണത്തിൽ സജീ വമായിരുന്നു

സ്ഥാനാർത്ഥികളും പ്രവർത്തകർക്ക് ആവേ ശം പകർന്ന് രംഗത്തുണ്ടായിരുന്നു

ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തും കുറവ് വയനാട്ടിലുമാണ്

സ്ഥാനാർത്ഥികൾ കൂടുതൽ ഉള്ള ആറ്റിങ്ങൽ വയനാട് തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഒന്നിലേറെ വോട്ടിങ്ങ് യന്ത്രങ്ങൾ ഉപയോഗിക്കും

ഒരു നിയമസഭാ മണ്ഡലത്തിലെ അഞ്ച് പോളിംഗ് ബൂത്തുകളിൽ വിവിപാറ്റ് എണ്ണും ഹരിത ചട്ടം പാലിച്ചുള്ള തെരെഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്

മദ്യശാലകൾ ഹോട്ടലുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മദ്യമോ മറ്റ് ലഹരി പദാർഥങ്ങളോ വിൽക്കാനോ വിതരണം ചെയ്യാനോ പാടില്ലെന്ന് ജില്ലാ കലക്ടർമാർ അറിയിച്ചു

ജനങ്ങൾ സംഘം ചേരുകയോ കൂട്ടംകൂടുകയോ ചെയ്യാൻ പാടില്ല കാസർകോട് കാസർകോട് ലോക്സഭാ മണ്ഡൂലം എൻ ഡി എ സ്ഥാനാർത്ഥി രവീശ്തന്ത്രി കുണ്ടാറിനു നേർൌആക്രമണം

ആക്രമണത്തിന് പിന്നിൽ സി പി ഐ എം ഡി

ഐ പ്രവർത്തകരാണെന്ന് ബി ജെ പി ആരോപിച്ചു

പ്രശ്നസാധൃതയുള്ള ബൂത്തുകളിൽ അധികസുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് നീലേശ്വരം

കൂടാതെ സി ഐ എസ് എഫ് സി ആർ

എഫ് ബി

വിരമിച്ച സൈനികർ പോലീസ് ഉദ്ദ്യോഗ്സ്ഥർ എന്നിവരെയും എൻ സി സി എൻ എസ് എസ് സ്റ്റുഡ്ഡ്റ്റ് പോലീസ് കേഡറ്റ് എന്നിവയിൽ പ്രവർത്തിച്ച് പരിചയം ്ഉള്ളവരെയുമാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി നിയോഗിച്ചത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

വടകരയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ വിദ്യാഭ്യാസരംഗത്ത് പുരോഗതിയുള്ള കേരളത്തിൽ രാഷ്ട്രീയപ്രതിയോഗികളെ ഇല്ലാതാക്കുന്ന സ്ഥിതി വിശേഷ മാണുള്ളതെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഒളിക്യാമറ കോഴിക്കോട്ടെ ഒളിക്യാമറാ വിവാദവുമായിട്ടു ബന്ധപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർഥി എം കെ രാഘവൻ പ്പിറ്റിന്റാർഥിത്വത്തിൽ നിന്നും പിൻമാറണമെന്ന് എൽ

ന്നിയമപരമായും ധാർമികപരമായും ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹ്ത്തിന് അവകാശമില്ലെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു

തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഗവൺമെന്റിനെ ജനങ്ങൾ വിലയിരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൽ മത്സരം എൽ ഡി എഫും യു

വർഗീയ ധ്രുവീകരണത്തിനും മതവിദ്ധേഷം പടർത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ പ്രചാരണ രംഗത്ത് ഉണ്ടായെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു

കൊളംബോ സനഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലുമാണ് ഉണ്ടായത്

പണത്തിന്റെയും വിജയങ്ങളുടെയും പിന്നാലെ പോകാതെ വിശ്വാസികൾ ദൈവത്തിനുവേണ്ടി ജീവിക്കാൻ തയ്യാറാക ണമെന്ന് ഈസ്റ്റർ സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപാപ്പ പറഞ്ഞു വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന പ്രാർത്ഥന യിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഒരു ലക്ഷത്തിലേറെ വിശ്വാസി കൾ പങ്കെടുത്തു സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പ്രത്യേക ആരാധനകൾ നടന്നു

പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലും നേതൃത്വം നൽകി സിറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൌണ്ടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി കോട്ടയം പഴയ സെമിനാരി യിൽ തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഡോ

കാലാവസ്ഥ സംസ്ഥാനത്ത് നാളെയും ഇടിമിന്നലോടു കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള പത്തുന്നുതിട്ട വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രിഖ്യാപിച്ചിരിക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിട്ട്ട്ന്റ് മഴ പ്രവചനം സൂചിപ്പിക്കുന്നു

കെട്ടിടങ്ങൾ സൊസൈറ്റിക്കുടിയിലെ ഗ്രാമ പഞ്ചായത്ത് ഓഫീസ് അക്ഷയ കേന്ദ്രം ഉൾപ്പടെയുള്ള കെട്ടിടങ്ങളാണ് തകർക്കപ്പെട്ടതെന്ന് ഗ്രാമപഞ്ചായത്തു പ്രസിഡന്റ് വി

കലാശകൊട്ട് ഇൻഡ്രോ പതിനേഴാം ലോകസഭയുടെ അമരക്കാരെ തിരഞ്ഞെടുക്കാനുള്ള വിധിയെഴുത്തിന്റെ പ്രചാരണത്തട്ടിൽ സംസ്ഥാനത്തെ മുന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് മുന്നേറിയത് ദേശീയസംസ്ഥാന നേതാക്കളെ അണിനിരത്തിയുള്ള പ്രചാരണത്തിൽ ആര് മുന്നിലെത്തി എന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് അൽപം മുമ്പ് അവസാനിച്ച കലാശക്കൊട്ടിലും ദൃശ്യമായത്